കവിഞ്ഞു

സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ന് എണ്ണം പത്തായി

ക്സാസുകൾ ഓൺലൈനിലും വിക്ടേർസ് ചാനൽ വഴിയും

ഡൽഹിയിൽ നിലവിൽ പതിനായിരത്തിൽ അധികം പേർ ചികിത്സയിലുണ്ട്

വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

കോവിഡിനെ പ്രതിരോധിക്കുന്നതിനും വ്യാപനം തടയുന്നതിനും സംസ്ഥാനൂങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി സംയ്യോജിച്ച് നിരവധി നടപടികളാണ് സർക്കാർ ക്ടൈക്കൊണ്ടതെന്ന് ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി

ജൂൺ എട്ടു മുതൽ ആരാധനാലയങ്ങൾ ഹോട്ടൽ റസ്റ്റോറന്റ് ഷോപ്പിംഗ് മാളുകൾ എന്നിവ തുറക്കും

സംസ്ഥാനങ്ങൾക്കുള്ളിലും അന്തർ സംസ്ഥാന യാത്രകളും അനുവദിച്ചിട്ടുണ്ട് അതേസമയം രാജ്യാന്തര വിമാനസർവ്വീസ് തീയേറ്ററുകൾ പൊതുസമ്മേളനങ്ങൾ എന്നിവയ്ക്കുള്ള നിരോധനങ്ങൾ ഈ ഘട്ടത്തിലും തുടരും നിരവധി സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ അഞ്ചാംഘട്ട ലോക്ഡൌണിന്റെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്

സി

സി നോൺ എ സി

യാത്രക്കാർ ഒന്നര മണിക്കൂർ മുമ്പ് തെർമൽ സ്ക്രീനിംഗിനായി സ്റ്റേഷനിൽ എത്തിച്ചേരണം ആരോഗ്യ പരിശോധനയിൽ കോവിഡ് ലക്ഷങ്ങളുണ്ടെങ്കിൽ യാത്രാനുമതി ലഭിക്കില്ല

കേരളത്തിൽ ജനശതാബ്ദി ഉൾപ്പെടെ ആറ് ട്രെയിനുകളാണ് ഇന്ന് സർവ്വീസ് നടത്തുക

കൊറോണ വിപത്തിനിടയിൽ ആളുകൾ യോഗയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലത്തുന്നു എന്നു കാണാനാകുന്നുണ്ട് സമൂഹത്തിനും രോഗപ്രതിരോധശേഷിക്കും യോഗ ഉത്തമമാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ഇതിൽ പത്തെണ്ണവും കേരളത്തിലേക്ക് എട്ട് വിമാനങ്ങൾ യു എയിൽ നിന്ന് ദുബായ് അബുദാബി ബെഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും

ദുബായിൽ നിന്നും മസ്ക്കറ്റിൽ പ് നിന്നുമുള്ള വിമാനങ്ങളാണ് കോഴിക്കോട് എത്തൂന്നത്

സൌദി അറേബ്യയിൽ നിന്ന് ഇന്ന് രണ്ട് വിമാനങ്ങളും ഇന്ത്യയിലെത്തും

രാവിലെ കൊളംബോയിൽ എത്തുന്ന കപ്പൽ ഇന്ന് വൈകിട്ടാണ് അവിടെ നിന്നും യാത്രതിരിക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തേക്കാണ് കപ്പൽ എത്തുന്നത് ശ്രീലങ്കയിൽ നിന്നുള്ള ആദ്യ ദൌതൃമാണിത്

റഷ്യയിൽ ഒൻപതിനായിരത്തിലധികം പേർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്

വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വൃക്തമാക്കിയത് ഹൈക്കമ്മിഷനിലെ വിസാ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന അബീദ് ഹുസൈൻ താഹിർഖാൻ എന്നിവരെയാണ് പുറത്താക്കിയത്

വിക്ടേർസ് ചാനൽ വഴിയാണ് ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത്